മൻകി ബാതിൽ പ്രധാനമന്ത്രി പ്രകൃതി സംരക്ഷണം ഏവരുടെയും കൂട്ടുത്തരവാദിത്തമാണെന്നും നരേന്ദ്രമോദി

സൌരഭ് വർമ്മ നേടി

ലക്നൌവിൽ അറുപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാന മന്ത്രി കൂടുതൽ വിവരങ്ങളുമായി സുലൈമാൻ്ട്

മുഖ്യമന്ത്രി സംസ്ഥാന വികസന പദ്ധതികൾക്കായി നിക്ഷേപകരുമായി നിരന്തരം ചർച്ചുകൾ നടത്തിവരികയാണ് ഡിജിറ്റൽ ഇന്ത്യ മെയ്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങൾക്ക് കരുത്തേകുവാൻ ലക്നൌ വികസന പദ്ധതികൾക്ക് സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

സബ്കാ സാത് സബ്കാ വികാസ് എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നരേന്ദ്രമോദിയുടെ നേതൃത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് ഒട്ടേറെ കർമ്മ പദ്ധതികളാണ് ആവിഷ്ക്കരിച്ച് നടപ്പാക്കുന്നതെന്ന് ചടങ്ങിൽ സംസാരിക്കവെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു

പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ ഉറപ്പാക്കുവാൻ പ്രകൃതി സംരക്ഷണ പരിപാലനവും പ്രകൃതിയോടുള്ള സ്നേഹവും പുലർത്തേണ്ടത് ഒരു കൂട്ടുത്തര വാദിത്തമായി ഏറ്റെടുക്കണമെന്ന് പ്രധാനമിന്റ് ി പറഞ്ഞു

ധൈര്യപൂർവ്വം രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ കുട്ടികളുടെ ജീവൻ രക്ഷിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

അധികം താൽപ്പര്യത്തോടും ഉത്സാഹത്തോടും ഈ വർഷത്തെ ഗണേശോത്സവം കൊണ്ടാടുവാൻ പ്രധാനമന്ത്രി ജനങ്ങളെ ആഹാനം ചെയ്തു

അദ്ദേഹത്തിന്റെ ഓരോ കവിതകളും ഇന്ത്യൻ ജനതയ്ക്ക് പ്രചോദനം നൽകുന്ന താണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ബി

മാനസികവും ശാരീരകവും ലൈംഗിക വുമായ പീഢനങ്ങൾ നടന്നതായാണ് ആരോപണം ബാലികാസദന ത്തിന്റെ ചുമതലക്കാരായ ഉദ്യോഗസ്ഥരെ സി ബി ഐ

കഴിഞ്ഞ വൃാഴാഴ്ചയാണ് ബിഹാർ ഗവൺമെന്റ് കേസ് സി ബി ഐ ക്ക് വിട്ടത്

് അ്ന്റധികൃതമായി സംസ്ഥാനത്ത് എത്തിയതുമൂലം ജുഡീഷ്യൽ ക്ട്ടേതി കുറ്റക്കാരായി പ്രഖ്യാപിച്ചവരും വീസാ കാലാവധി തീർന്നശ്ശേഷ്വ്രും ് സംസ്ഥാനത്ത് അനധികൃതമായി താമസിച്ചിരുന്നവരുമായ പ്പ്പ്ശ്ശാദേശി പൌരന്മാരെയാണ് ഇന്ന് തിരിച്ചയച്ചതെന്ന് അസ്ളൌത്പൂഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എൽ

ദേശീയ പൌരരേഖ പുതുക്കി പ്രസിദ്ധീകരിക്കുന്നതിന് രാഷ്ട്രീയ കക്ഷികൾ ഗവൺമെന്റിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു

രേഖയിലെ പിശകുകൾ സംബന്ധിച്ച് വിവരങ്ങൾ നൽകാൻ എല്ലാവർക്കും അവസരം നൽകുമെന്ന് സർവ്വകക്ഷി യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി സർവാനന്ദ് സോനോവാൾ ഗുവഹാത്തിയിൽ വാർത്താ ലേഖഖരോട് പറഞ്ഞു

ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്

ജില്ലിയിലെ നർസാർലപള്ളി ബസ് സ്റ്റാന്റിനു സമീപമാണ് ദുരന്തമുണ്ടായത്

കൂട്ടുകക്ഷി ഗവൺമെന്റ് ഉണ്ടാക്കുന്ന തിനായി സ്വതന്ത്രരുമായും ചെറു കക്ഷികളുമായും ചർച്ചകൾ പുരോഗമിക്കുകയാണ്

ഏറ്റവും വലിയ ഒറ്റകക്ഷി ആണെങ്കിലും പാർട്ടിക്ക് തനിയെ പാർലമെന്റിൽ ഭൂരിപക്ഷം തെളിയിക്കാനാവില്ല

ജയിലിൽ അദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർമാരുടെ നിർദ്ദേശ പ്രകാരമാണ് ആശുപത്രിയിലേയ്ക്ക് മാറ്റുന്നതെന്ന് കെയർ ടേക്കർ ഗവൺമെന്റ് വൃക്തമാക്കി അദ്ദേഹത്തിന്റെ ഇ

യിൽ വൃതിയാനം കണ്ടെത്തിയതായി ഡോക്ടർമാർ പറഞ്ഞു

മിക്സഡ് ഡബിൾസിൽ റോഹൻ കപൂറും കുഹു ഗാർഗ്ഗും ഉൾപ്പെട്ട ഇന്ത്യൻ സഖ്യം ഫൈനലിൽ പരാജയപ്പെട്ടു

കെ പ്രസിഡന്റുമായ എം കരുണാനിധിയുടെ ആരോഗ്യ നിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു